ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം ആറുമാസം കൂടി പിടിയ്ക്കും

രാജ്യത്തെങ്ങും ആഘോഷ പരിപാടികൾ

സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യാൻ നിയോഗിച്ച രണ്ട് സമിതികളുടെ ശുപാർശ പ്രകാരമാണ് നടപടി

എഫിൽ ലയിപ്പിക്കും

അന്തിമ തീരുമാനം ജീവനക്കാരുടെ അംഗീകൃത സംഘടനകളുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന ലീവ് സറണ്ടർ ആനുകൂല്യം പി എഫിൽ ലയിപ്പിക്കുമെന്ന വ്യവസ്ഥയിൽ സെപ്തംബർ മുതൽ അനുവദിക്കും ഈ തുക അടുത്ത ജൂൺ ഒന്നുമുതൽ പി എഫിൽ നിന്ന് പിൻവലിക്കാം അടുത്ത സാമ്പത്തിക വർഷം ജീവനക്കാരുടെ ലീവ് സറണ്ടർ ജൂൺ ഒന്നുമുതൽ മാത്രമേ അനുവദിക്കൂ

രുമ ഇപ്പോഴത്തെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കൊല്ലം ആസ്ഥാനമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ നടത്തുന്ന കേരളത്തിലെ മൂന്ന് സർവ്വകലാശാലകൾക്കും യു ജി സി നിർദ്ദേശിക്കുന്ന നാക് അക്രഡിറ്റേഷൻ സ്കോർ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം ഒരു മണിക്കൂർ നീട്ടാൻ കേരളാ മുനിസിപ്പാലിറ്റി നിയമത്തിലും പഞ്ചായത്ത് രാജ് ആക്ടിലും ഭേദഗതി കൊണ്ടുവരുന്നതിനും ഗവർണറോട് ശുപാർശ ചെയ്യും പോളിംഗ് സമയം രാവിലെ ഏഴുമുതൽ വൈകിട്ട് ആറുവരെയാക്കാനാണ് ശുപാർശ കോവിഡ് ബാധിച്ചവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും തപാൽ വോട്ട് ചെയ്യാൻ അവസരം നൽകും

ജില്ലാ കലക്ടർ സ്ഥാപനം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മെഡിക്കൽ കോളേജിലെ പ്രത്യേക മെഡിക്കൽ സംഘത്തെ തുടർ നടപടികൾക്ക് ചുമതലപ്പെടുത്തി ദര ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം മൂന്ന് കോടി കവിഞ്ഞു

രുര തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംവരണ മണ്ഡലങ്ങളും വാർഡുകളും തീരുമാനിക്കാൻ നറുക്കെടുപ്പ് തീയതി നിശ്ചയിച്ചു

ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും ഒക്ടോബർ അഞ്ചിന് നറുക്കെടുപ്പ് നടത്തും ജില്ലാ കലക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

മൂന്ന് മേഖലകളിലെയും നഗരകാര്യ റീജിയണൽ ജോയിന്റ് ഡയറക്ടർമാർക്കാണ് ചുമതല

രുമ കുട്ടനാടിന്റെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന പദ്ധതിയ്ക്ക് ഇന്ന് തുടക്കമാവും

വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പദ്ധതികൾ പ്രഖ്യാപിക്കും

ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ബി ജെ പി രാജ്യവ്യാപകമായി സേവാ സപ്താഹം നടത്തിവരികയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ മാസ്ക് വിതരണം അന്നദാനം മെഡിക്കൽ ക്യാമ്പുകൾ രക്തദാനം എന്നിവ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ടെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ദീർഘായുസ്സിനായി പ്രമുഖ ക്ഷേത്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും രാമചരിത മാനസ പാരായണം ഉൾപ്പെടെ പ്രത്യേക ചടങ്ങുകളും ഉണ്ടാവും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന നേതാക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ ജന്മദിനാഘോഷ പരിപാടികളിൽ പങ്ക് ചേരും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും എല്ലാ പരിപാടികളും കോഴിക്കോട്ട് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ബി ജെ

കെ സജീവൻ ഉദ്ഘാടനം ചെയ്യും രുമ നിയമസഭയിൽ അഞ്ച് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയെ ഇന്ന് കോട്ടയത്ത് ആദരിക്കും മാമ്മൻ മാപ്പിള ഹാളിൽ വൈകിട്ട് അഞ്ച് മണിക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധി സൂം മീറ്റിലൂടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും

ഇപ്പോൾ എ ഐ

സി ജനറൽ സെക്രട്ടറിയാണ് ഉമ്മൻചാണ്ടി രും ഇന്ന് വിശ്വ കർമ്മ ദിനം ലോക സ്രഷ്ടാവും തൊഴിൽ ശക്തിയുടെ അധിപനുമായ വിശ്വകർമ്മ ദേവ സ്മരണയിലാണ് ദിനാഘോഷം കോവിഡ് പശ്ചാത്തലത്തിൽ ശോഭായാത്രകളും സമ്മേളനങ്ങളും ഒഴിവാക്കിയാണ് ഈ വർഷം വിശ്വകർമ്മദിനം ആഘോഷിക്കുന്നത് വിശ്വകർമ്മ സർവ്വീസ് സൊസൈറ്റി ശാഖകളും വിശ്വകർമ്മ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചായിരിക്കും പരിപാടികൾ

എസ് എസ് സംസ്ഥാന കമ്മിറ്റി വൈകിട്ട് വിശ്വകർമ്മ വെർച്വൽ മഹാസംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂ മാഹിയിൽ അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മേഖലാ കമ്മിറ്റിയും ന്യൂ മാഹി വിശ്വകർമ്മ സംഘവും വൈകിട്ട് ദീപം തെളിയിച്ച് ദിനാഘോഷം നടത്തും രുമ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടറും അവിനാശിലിംഗം വനിതാ സർവ്വകലാശാല ചാൻസലറുമായിരുന്ന ഡോ

സംസ്കാരം രാവിലെ കോയമ്പത്തൂർ നഞ്ചുണ്ടാപുരം ഇഷാ വൈദ്യുത ശ്മശാനത്തിൽ നടത്തും

ആർ കൃഷ്ണകുമാറിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു

ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും അനുശോചനം അറിയിച്ചു രേര പീരുമേട് ദേവികുളം സംസ്ഥാന പാതയുടെ ഭാഗമായ കുട്ടിക്കാനം ചപ്പാത്ത് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും

സി സി നിർവ്വാഹക സമിതി അംഗവും കോവളം മുൻ എം എൽ

മുഖ്യമന്ത്രി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരട്ടം പ്രമുഖർ മരണത്തിൽ അനുശോചനം അറിയിച്ചു രുഭ ജമ്മു കശ്മീരിലെ നൌഷാര സെക്ടറിലെ സുന്ദർബനിൽ പാക്കിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ അനീഷ് തോമസിന്റെ മൃതദേഹം രാവിലെ പത്തരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും ഉച്ചയ്ക്ക് ജന്മനാടായ കൊല്ലം കടയ്ക്കലിൽ വീട്ടിൽ പൊതു ദർശനത്തിന് വെച്ച ശേഷമായിരിക്കും സംസ്കാരം സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന ലക്ഷ്യം പൂർത്തിയാക്കുമെന്നും തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ സൌരോർജ്ജ പദ്ധതികൾ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി എം